ബോണസ് കഴിഞ്ഞ തവണത്തേതുപോലെ നൽകാനും ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു

ഇന്നലെ രണ്ടുപേരുടെ മൃതദേഹം കണ്ടെടുത്തിരുന്നു

തെരച്ചിലിന്റെ രണ്ടാംഘട്ടം ആരംഭിച്ച ഇന്ന് പ്രദേശത്തെ വെളളക്കെട്ട് മോട്ടോർ ഉപയോഗിച്ച് നീക്കം ചെയ്തു അപകടത്തിൽപ്പെട്ട എല്ലാവരെയും കണ്ടെത്തുന്നതുവരെ തെരച്ചിൽ തുടരുമെന്ന് അധികൃതർ അറിയിച്ചു ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്ന് കവളപ്പാറയിൽ സ്ഥല പരിശോധന നടത്തും